എഫ് വരിക്കാരായ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന പെൻഷന് ഓപ്ഷൻ കൊടുക്കാമെന്ന് കോടതി വിധിച്ചു

മണ്ഡല മകരവിളക്ക് കാലത്ത് തീർത്ഥാടകർക്ക് സൌകര്യം ഏർപ്പെടുത്താൻ പാലങ്ങൾ അനുബന്ധ റോഡുകൾ കലുങ്കുകൾ എന്നിവ സമയബന്ധിതമായി പുനർ നിർമ്മിക്കാനാണ് ടാറ്റാ പ്രൊജക്ടിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നിലയ്ക്കലിൽ ആറായിരം തീർത്ഥാടകർക്ക് ഇടത്താവളം ഉൾപ്പെടെ പതിനായിരം പേർക്ക് ആവശ്യമായ വിശ്രമകേന്ദ്രം നിർമ്മിക്കുന്ന ജോലിയും പുരോഗമിക്കുകയാണ് രദ്ദമ്പ്പെട്ടറ ശബരിമല സുപ്രീംകോടതി വിധിയിൽ വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് വൃക്തമാക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കൊല്ലത്ത് ആവശ്യപ്പെട്ടു ചിന്നക്കടയിൽ ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഡി എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലോംഗ് മാർച്ച് രാവിലെ കൊല്ലം മാടൻനടയിൽ നിന്ന് ആരംഭിക്കും വൈകീട്ട് ചാത്തന്നൂരിലാണ് ജില്ലാതല സമാപനം രദ്ദേഷ്ടങ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി നിലനിർത്തണമെന്ന് ദ്രാവിഡ ക്ഷേത്ര സംരക്ഷണ വേദി സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പത്തനംതിട്ടയിൽ ആവശ്യപ്പെട്ടു കോടതി വിധി സ്വാഗതം ചെയ്ത ദേവസ്വം ബോർഡ് തീരുമാനം നിരാശാജനകമാണെന്നും അവർ പറഞ്ഞു

ടി പാർക്കുകളുടെ മൊത്തം വിസ്തൃതി രണ്ടുകോടി മുപ്പത് ലക്ഷം ചതുരശ്ര അടിയായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇതുവഴി രണ്ടരലക്ഷം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭ്യമാകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ടി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയായ ഡൌൺ ടൌൺ ട്രിവാൻഡ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജീവനക്കാരുടെയും സേവന വേതന വൃവസ്ഥകളുടെയും ഏകീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ പതിനഞ്ച് ദിവസത്തിനകം ഗവൺമെന്റിന് നിർദ്ദേശം നൽകണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കേരളാ ബാങ്ക് രൂപീകരണത്തിന്റെ പേരിൽ ശാഖകൾ പൂട്ടുകയോ ജീവനക്കാരെ കുറയ്ക്കുകയോ ചെയ്യില്ലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് സംഘടനകളെ അറിയിച്ചു രദ്ദമ്പ്പെട്ടറ അടുത്ത അധ്യയന വർഷം മുതൽ ഗവൺമെന്റ് കോളജുകളിൽ കൂടുതൽ സീറ്റ് അനുവദിക്കുമെന്ന് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ അറിയിച്ചു വിദേശ വിദ്യാർത്ഥികളെയും ഇതര സംസ്ഥാന വിദ്യാർത്ഥികളെയും ആകർഷിക്കാൻ കലാലയങ്ങളിലെ സൌകര്യങ്ങളും മെച്ചപ്പെടുത്തും എറണാകുളം മഹാരാജാസ് കോളജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിനായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പുതിയ അക്കാദമിക് സമുച്ചയത്തിനും മന്ത്രി തറക്കല്ലിട്ടു അട്ട്ട്ട്ട്ട്ട്ട്ട്ട ഗതാഗതം നിയന്ത്രിക്കാൻ റോഡിന് കുറുകെ കയറോ വടമോ കെട്ടരുതെന്ന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം കൃത്യമായി പാലിക്കാൻ സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ആവശ്യപ്പെട്ടു ഗതാഗതം വഴിതിരിച്ചു വിടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് മുമ്പുതന്നെ അതുസംബന്ധിച്ച ബോർഡ് സ്ഥാപിക്കണം ഗതാഗത നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ബാരിക്കേഡുകളും റിഫ്ളക്ടറുകളും വളരെ ദൂരത്തുനിന്ന് കാണാവുന്ന തരത്തിൽ ആയിരിക്കണമെന്നും ഡി ജി പിയുടെ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രുവെട്ടുമ മുല്ലപ്പെരിയാർ ഡാം ഒഴികെ കേരളത്തിലെ അണക്കെട്ടുകളും ബാരേജുകളും സുരക്ഷിതമാണെന്ന് ഇതിനായി നിയോഗിച്ച കമ്മിറ്റി ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി അന്താരാഷ്ട്ര ഡാം സുരക്ഷാ വിദഗ്ദ്ധൻ ഡോക്ടർ ബാലു അയ്യരും ജലസേചന ചീഫ് എഞ്ചിനീയർ കെ എസ് ഇ ബിയുടെ ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പഠനം നടത്തിയത്

ഡാമുകളുടെ പരമാവധി സംഭരണശേഷി നിർണയിക്കാൻ ഹൈഡ്രോളജി പഠനം നടത്തണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചു അണക്കെട്ടുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ നടപടികൾ കൈക്കൊള്ളണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു

ഐ എം സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ ചേർന്നിരുന്നു ശബരിമല വിധിക്കെതിരായ പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളെ രാഷ്ട്രീയമായി നേരിടണമെന്ന് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായെന്നാണ് റിപ്പോർട്ടുകൾ

കെ ശശി എം എൽ എക്കെതിരായ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റ് യോഗം പരിഗണിച്ചില്ലെന്നും റിപ്പോർട്ടുണ്ട്

ഇന്ത്യയ്ക്കുവേണ്ടി ഉമേഷ് യാദവും കുൽദീപ് യാദവും മൂന്ന് വിക്കറ്റ് വീതവും അശ്വിൻ ഒരു വിക്കറ്റുമെടുത്തു

അഞ്ച് മീറ്റ് റെക്കോർഡുകൾ ആദ്യദിനം പിറന്നു ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും

ഗോവ ക്രിക്കറ്റ് അസോസിയേഷൻ ഗ്രൌണ്ടിലാണ് മത്സരം ദർവ്വെടു കഴുകി വൃത്തിയാക്കിയ റെഡി ടു കുക്ക് മത്സ്യം ഡിസംബറിൽ വിപണിയിലെത്തിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊച്ചിയിൽ പറഞ്ഞു ആറുമാസത്തിനകം തീരമൈത്രിയുടെ ഉണക്കമത്സൃം എല്ലാ സൂപ്പർമാർക്കറ്റുകളിലും കടകളിലും ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു

അർഹരായ എല്ലാവർക്കും രണ്ടാഴ്ചകൊണ്ട് വായ്പ ലഭൃമാക്കാൻ കഴിയുമെന്ന് കുടുംബശ്രീ അറിയിച്ചു രദേഷ്ടെടു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തൊഴിലാളിദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഐ എൻ

സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിൽ ഐ

സി ജില്ലാ നേതൃത്വ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദർശ്ശേദ് മുൻഗണനാ വിഭാഗത്തിൽപ്പെടാത്ത സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും ഈ മാസവും നവംബർ ഡിസംബർ മാസങ്ങളിലും അഞ്ച് കിലോ അരിവീതം നൽകാൻ ഗവൺമെന്റ് സിവിൽ സപ്ലൈസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി നേരത്തെ ഈ മാസം പത്ത് കിലോ അരി നൽകാനായിരുന്നു തീരുമാനം പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് നടപടി രുള്ളട്ട്ട്ട്ട്ട്ട്ട കാഞ്ഞങ്ങാട്ട് പ്രളയദുരിതാശ്ചാസ പ്രവർത്തനത്തിനിടെ എലിപ്പനി ബാധിച്ച് മരിച്ച മാവുങ്കാൽ പുലയനടുക്കത്തെ വിബിന്റെ കുടുംബത്തിനാവശ്യമായ സഹായം നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി ഈ ആവശ്യമുന്നയിച്ച് ബി ജെ പി കാസർകോട് ജില്ലാ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു രദേഷ്ടെടു ദേശീയപാതയിൽ ഇടുക്കി നേര്യമംഗലം മുതൽ മൂന്നാർ മാട്ടുപ്പട്ടി വരെ പ്രദേശങ്ങളെ മാലിനൃമുക്തമായി സംരക്ഷിക്കുന്നതിന് വേസ്റ്റ് കൺട്രോൾ ചെക്പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു

ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും കട്ടപ്പന എക്സ് സർവീസമെൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്

ഒരു മിനിറ്റ് നേരത്തേക്കാണ് സ്റ്റോപ്പ്

വൈകീട്ട് അഞ്ചിന് മുതലക്കുളത്ത് ചേരുന്ന സമ്മേളനം സമസ്ത കേരള ജം ഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ ഉദ്ഘാടനം ചെയ്യും രദേവ്ട്ട്ട്ട്ട്ട്ട കൊല്ലം ജില്ലയിലെ വെളിയിട വിസർജ്ജന്രമുക്തമായ അഞ്ച് നഗരസഭകൾക്കും ക്വാളിറ്റി കൌൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയ പുനപരിശോധനയിൽ സർട്ടിഫിക്കറ്റ് നൽകി ഈ നേട്ടം കൈവരിച്ച നഗരസഭകൾ ഓരോ ആറുമാസവും പുനപരിശോധനക്ക് വിധേയമാകണമെന്നാണ് വൃവസ്ഥ

ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ മാത്രമേ പഠനയാത്ര നടത്താവൂ എന്നും നിർദ്ദേശമുണ്ട് രുട്ട്ട്ട്ട്ട്ട്ട്ട കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി വാർഷിക ജനറൽബോഡി യോഗവും ജില്ലാ സമ്മേളനവും ഇന്ന് പാലക്കാട്ട് നടക്കും

ഡി പ്രസേനൻ എം

എ ഉദ്ഘാടനം ചെയ്യും